സിറം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പ്ൻ തീപിടുത്തം അഞ്ച് പേർക്ക് ജീവഹാനി

കൊണ്ടുവന്ന അടിയന്തിര പ്രമേയം വോട്ടെടുപ്പ് കൂടാതെ തള്ളി

ചെന്നൈ എഫ് സിയും നേർക്കുനേർ

അതിനുശേഷം വാക്സിനേഷന്റെ തുടർന്നുളള സുഗമമായ നടത്തിപ്പു സംബന്ധിച്ച് ശാസ്ത്രജ്ഞർ രാഷ്ട്രീയ നേതാക്കൾ ഉദ്യോഗസ്ഥർ എന്നിവരുമായും പ്രധാനമന്ത്രി ചർച്ച നടത്തും

കൊൽക്കത്തിയിലെ വിക്ടോറിയ മെമ്മോറിയയിൽ നടക്കുന്ന നേതാജി സുഭാഷ് ചന്ദ്രബോസിന്റെ ജന്മദിന വാർഷിക ദിനാചരണ പരിപാടിയായ പരാക്രമം ദിവസ് പ്രധാനമന്ത്രി അഭിസംബോധന ചെയ്യും കൂടുതൽ വിവരങ്ങളുമായി പ്രവീൺ കുമാർ

ഒരു സ്ഥിരം പ്രദർശന വേദിയും നേതാജിയുടെ ജീവിതവുമായി ബന്ധപ്പെട്ട മാപ്പിംഗ് ഷോയും പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്യും

ന്യൂസ് ഡസ്ക് ആകാശവാണി

ശ്രീരാമകൃഷ്ണനെതിരെ കേരളാ പ്രതിപക്ഷം കൊണ്ടു വന്ന അടിയന്തരപ്രമേയം വോട്ടെടുപ്പ് കൂടാതെ തള്ളി

സ്വർണ്ണക്കടത്ത് പ്രതിയുമായി സ്പീക്കർ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്തത് അപകീർത്തികരമെന്ന് കാട്ടിയാണ് പ്രതിപക്ഷം ഇന്ന് പ്രമേയം കൊണ്ടുവന്നത്

ഉമ്മർ എംഎൽഎ അവതരിപ്പിച്ച പ്രമേയം ചർച്ച ചെയ്യുന്നതിന് മുന്നോടിയായി സ്പീക്കർ ഡയസിൽ നിന്ന് മാറുകയും ഡെപ്യൂട്ടി സ്പീക്കർ സഭയുടെ നിയന്ത്രണം ഏറ്റെടുക്കുകയും പ്രതിപക്ഷത്തിന്റെ രാഷ്ട്രീയ പാപ്പരത്തമാണ് പ്രമേയമെന്നും സ്പീക്കർക്കെതിരെ പുകമറ സൃഷ്ടിക്കാൻു നീക്കം നടക്കുന്നതായും പ്രമേയത്തെ എതിർത്തു കൊണ്ട് മുഖ്യ്മന്ത്രി നിയമസഭയിൽ പറഞ്ഞു

ഇതിൽ പ്രതിഷേധിച്ച് വോട്ടെടുപ്പിന് നിൽക്കാതെ പ്രതിപക്ഷം സഭ വിട്ടിറങ്ങി

നാളെയാണ് വോട്ടെണ്ണൽ

കമ്പനി തുറന്നു പ്രവർത്തിക്കാൻ സാധൃമായതെല്ലാം ചെയ്യുമെന്ന് എം

എസ് ശിവകുമാറിന്റെ ചോദ്യത്തിന്റ് മറുപടിയായി മന്ത്രി പറഞ്ഞു

തെരഞ്ഞെടുപ്പിന് മുൻപ് ഒരു തവണ കൂടി പേര് ചേർക്കാൻ അവസരം ലഭിക്കും

ആത്മനിർഭർ ഭാരതിന്റെ ഭാഗമായി വിദേശ നിർമ്മിത ആയുധങ്ങളുടെ ഉപയോഗം ക്രമേണ കുറച്ച് സ്വയം പര്യാപ്തത കൈവരിക്കുന്നതിനാണ് ധാരണാപത്രം ഒപ്പുവച്ചത്

എല്ലിൽ എ ടി ഉക് ് മോഹൻ ബഗാനും ചെന്നൈ എഫ്

ഗോവയിലെ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിലാണ് മത്സരം ഇന്നലെ നടന്ന മത്സരത്തിൽ കേരള ക്ലാസ്റ്റേഴ്സ് ഒന്നിനെതിരെ രണ്ട് ഗോളിന് ബംഗ്ളുരു എഫ് സിയെ പരാജയപ്പെടുത്തി

അത്തരത്തിലുളള ഉത്തരവ് സർക്കാർ പുറപ്പെടുവിച്ചിട്ടില്ലെന്നും പ്രസ്സ് ഇൻഫർമേഷൻ ബ്യൂറോ അറിയിച്ചു

സമ്പന്നമായ ചരിത്രവും സംസ്കാരമുള്ള മൂന്നു സംസ്ഥാനങ്ങളും വിവിധതലങ്ങളിൽ കൈവരിക്കുന്ന പൂരോഗതിക്ക് ആക്കം വർദ്ധിക്കട്ടെയെന്ന് രാഷ്ട്രപതി ആശംസിച്ചു സംസ്കാരിക് കായിക മേഖലകളിൽ ഈ സംസ്ഥാനങ്ങൾ കൈവരിച്ചിട്ടു ഔന്നത്യത്തെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും പ്രകീർത്തിച്ചു